അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി കേന്ദ്രം ആവിഷ്കരിച്ച പെൻഷൻ പിദ്ധതിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി പെരിയയിൽ കൊല്ലപ്പെട്ട രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്ത കരുടെ കുടുംബസ്ഹായനിധി സമാഹരണം ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പര അൽപസമ യത്തിനകം ഹൈദരാബാദിൽ തുടങ്ങും എൽഡിഎഫിന്റെ കേരള സംരക്ഷണയാത്ര ഇന്ന് തൃശൂരിൽ സമാപിക്കും

ഇതിന്റെ ഭാഗമായി കോഴിക്കോട് എൻ ഐ ടി യിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥി കളുമായി വീഡിയോ കോൺഫറൻസിങ് നടത്തും

സോഫ്റ്റ് വെയർ രംഗത്ത് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനൊപ്പം പുതിയതും തടസ്സ രഹിതവുമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തവുമാണ് ഹാക്കത്തണിന്റെ ലക്ഷ്യം

നൂതനവും ആഗോളതല ത്തിൽ ഉപയോഗിക്കപ്പെടുന്നതുമായ സാങ്കേതിക വിദ്യകൾ രണ്ടുദിവസത്തെ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഇന്ത്യൻ വൈമാനികൻ അഭിനന്ദൻ വർദ്ധമാനെ മോചിപ്പിച്ച പാക്കിസ്ഥാൻ നടപടിയെ ഐക്യരാഷ്ട്ര ്ലസ്ക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സാഗതം ചെയ്തു ഇരു രാജ്യങ്ങൾക്കു മിടയിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പ്രിഹ്രിക്കാൻ അനുകൂ ല സാഹചര്യം ഇതോടെ ഉണ്ടായിരിക്കുകയാണെന്ന് ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു ഇന്നലെ രാത്രിയാണ് പാക്കിസ്ഥാൻ അഭിന ന്ദൻ വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറിയത്

രജോരി പൂംഞ്ച് ജില്ലകളിൽ എട്ട് ദിവസമായി പാക്കി സ്ഥാൻ വെടിനിർത്തൽ ലംഘനം നടത്തിവരികയാണ്

വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഇന്നലെ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിക്കുകയും അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തി രുന്നു

ഇവ രുടെ ബാങ്ക് അക്കൌണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്

അസംഘടിത മേഖലയിലെ തൊഴിലാളിക്കൾക്കായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പെൻഷൻ പദ്ധതിയ്ക്ക് രജിസ്ട്രേ ഷൻ ആരംഭിച്ചു

ചുമട്ടുതൊഴിലാളികൾ ക്യാർഷിക്മേഖലയിൽ ജോലി ചെയ്യു ന്നവർ നിർമാണ തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ മോട്ടോർവാഹന ജീവനക്കാർ ചെറുകിട കച്ചവടക്കാർ ആശാ അങ്കണവാടി പ്രവർത്തകർ തുടങ്ങി നൂറിലേറെ മേഖലകളിൽ ജോലി ചെയ്യുന്നിവർക്ക് പദ്ധതി പ്രയോജപ്പെടുത്താം

ഇഎസ്ഐ ഇപിഎഫ് ദേശീയ പ്പെൻഷൻ പദ്ധതി എന്നിവയിൽ അംഗങ്ങളായവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്ര ങ്ങളിലും കേന്ദ്രഗവൺമെന്റിന് കീഴിലെ കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്റ്റർ ചെയ്യാം കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബ സഹായ ഫണ്ട് സമാഹരണത്തിന് യു

എഫ് ദേശീയ സം സ്ഥാന നേതാക്കൾ ഇന്ന് കാസർകോട് ജില്ലയിൽ ഫണ്ട് സ്വരൂ പിക്കും കാഞ്ഞങ്ങാട് നഗരത്തിൽ എ ഐ

സി ജനറൽ സെക്ര ട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ഫണ്ട് പിരിവിന് നേതൃത്വം നൽകും കാസർകോട്ട് പി

കെ മുനീർ കെ മുരളീധരൻ ബെന്നി ബഹനാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഫണ്ട് പിരിവിനായി ഇറങ്ങും വൈകീട്ട് മൂന്നിന് പെരിയയിൽ ഇരട്ടക്കൊലപാതക ത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ സംഗമവും നടക്കും കാസർകോട് പെരിയ ഇരട്ടക്കൊലപാതക അന്വേഷണ ചുമ തലയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് എസ് പി വിശ്രം മുഹമ്മദ് റഫീഖിനെ മാറ്റി

തിങ്കളാഴ്ചയാണ് മുഹമ്മദ് റഫ്ടീഖിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത് പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിന്ന് തന്നെ മാറ്റിയത് ആരോഗൃ പ്രശ്നങ്ങൾ കാ്രണമാണെന്ന് ക്രൈംബ്രാഞ്ച് എസ്

മേൽനോട്ട ചുമതലയിൽ നിന്ന് മാത്രമാണ് മാറ്റിയതെന്നും അന്വേഷണ് സ്രംഘത്തിൽ തുടരുമെന്നും മുഹമ്മദ് റഫീഖ് പറഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോ ഗസ്ഥന് പകരം അന്വേഷണ ഏജൻസിയെയാണ് മാറ്റേണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ പറഞ്ഞു കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം കാസർക്കോട്ട് ആവശ്യപ്പെട്ടു പെരിയ ഇരട്ട കൊലപാതകത്തെ ന്യായീകരിക്കാനാണ് സിപി ഐഎം ശ്രമിക്കുന്നതെന്ന് വി ടി ബലറാം എം എൽഎ കണ്ണൂ രിൽ പറഞ്ഞു കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതാഭ സ്മവും വഹിച്ച് കൊണ്ടുളള ധീരസ്മൃതി യാത്രക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം കൊലപാതക രാഷ്ട്രീയത്തെ സാംസ്കാരിക നായകർ തള്ളി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഛന്ദ കൊച്ചാറിന്റെയും വീഡിയോക്കോൺ ഉടമ വേണു ഗോപാൽ ധൂതിന്റെയും ഓഫീസുകളിലും വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കഴിഞ്ഞ് ദിവസം റെയ്ഡ് നടത്തിയിരുന്നു

ഇന്ധനവില വീണ്ടും വർധിച്ചു

ആദിവാസി കോളനികളിൽ ലഖുലേഖ വിതരണം ചെയ്ത കേസിൽ മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും

കുറ്റപത്രം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി

കേരളത്തിലെ സൈബർ ഡോമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ സൈബർ ഡോം ആസ്ഥാനത്ത് എത്തിയ ദുബായ് പൊലീസ് ബ്രിഗേഡിയർ ഖാലിദ് അൽ റസൂഖിയാണ് സൈബർ ഡോമിന്റെ സഹകരണം കേരള പൊലീസിനോട് ആവശ്യപ്പെട്ടത് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരക്ക് ഇന്ന് ഹൈദ രാബാദിൽ തുടക്കമാകും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം പരി ശീലനത്തിനിടെ പരിക്കേറ്റതിനാൽ ധോണീ ആദ്യ ഏകദിനത്തിൽ നിന്നും പിൻവാങ്ങിയതായാണ് റിപ്പോർട്ട്

ഐ

സ്കൂളുകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്താ നായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്കൂളുളുകളിൽ സി സി ടി

ജില്ലാതല ഉദ്ഘാടനം ചാല ഗവ

കൂടുതൽ പേർക്ക് പദ്ധതി പ്രയോജനപ്പെടാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നടപ്പടി കൊച്ചിയിലെ ചെരുപ്പ് കമ്പനി ഗോഡൌൺ തീപിടിത്തം സംബ ന്ധിച്ച് ഫയർ ആന്റ് സേഫ്റ്റി വിഭാഗം അന്വേഷണ റിപ്പോർട്ട് കൈമാറി

കെട്ടിടം ഉടമ ഗുരുത്രമായ് നിയമലംഘനം നടത്തിയെന്നും തീപിടിത്തത്തിന്റെ ആഘാത്ം കൂടാൻ ഇത് കാരണമായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇലക്ട്രിക് പാനൽ ബോർഡിൽ നിന്നാണ് തീപടർന്നത് കമ്പനിയിലെ അഗ്നിശമന സംവിധാന്ംപ്രവർത്തന രഹിതമാണെന്ന് സൂചന ലഭിച്ച സാഹചരൃത്തിലണ് ഫയർ ആന്റ് സേഫ്റ്റി വിഭാഗം അന്വേഷണം ആരംഭിച്ചത് നഗര വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായ അമൃത് ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുടിവെള്ള കണക്ഷൻ സൌജന്യമായി നൽകുന്ന കൊല്ലം കോർപ്പറേഷന്റെ പദ്ധതി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവർക്ക് കുടിവെള്ളം പ്രാപ്യമാക്കുന്ന പദ്ധതി ഏറെ പ്രാധാന്യമുള്ളതാണെന്നും പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം ഓരോരുത്തരും സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തടസ്സപ്പെട്ടിരുന്ന കൊച്ചി നഗരത്തിലെ മാലിന്യനീക്കം ഭാഗികമായി പുനരാരംഭി ച്ചു തീപിടുത്തതെ തുടർന്ന് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്പാന്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതിനെ തുടർന്നാണ് മാലി ന്യനീക്കം തടസ്സപ്പെട്ടത്

ജൈവ മാലിന്യങ്ങളുടെ നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചത്

സിനിക്കെതിരെ തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതിനെത്തു ടർന്നാണ് നടപട്ടി അതേസമയം സിനിയുടെ ഭർത്താവ് വെസ്ലി മാത്യൂസിന്റെ വിചാരണ അടുത്തമാസം ആരംഭിക്കും